അവതരിപ്പിക്കുന്ന മേളകളിലും പ്രദർശനങ്ങളിലും പങ്കെടുത്ത് രാഷ്ട്ര വികസനത്തിൽ പങ്കാളിയാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം

വരവേൽക്കാനൊരുങ്ങി രാജ്യം അഹമ്മദ്ബാദിലും ആഗ്രയിലും ഒരുക്കങ്ങൾ പൂർത്തിയായി

സാധാരണക്കാർക്ക് കൂടുതൽ പ്രാപൃമാക്കിയ സുപ്രീംകോടതി നടപടികൾക്ക് രാഷ്ട്രപതിയുടെ അഭിനന്ദനം

തുടർന്ന് ദക്ഷിണ കൊറിയയിൽ അതീവ ജാഗ്രത

വിഭാഗത്തിൽ ഇന്തൃയുടെ ജിതേന്ദ്രകുമാർ ഫൈനലിൽ

നവഭാരതത്തിലെ നമ്മുടെ സഹോദരിമാരും അമ്മിട്ടിരും പുതിയ വെല്ലുവിളികൾ നേരിടാനും സമൂഹത്തിൽ സർഗാത്മകമായ മാറ്റം വരുത്താനും പ്രേരണയാ കുന്നതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു വോയിസ് നവഭാരതത്തിലെ വനിതകൾ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറുള്ളവരാണെന്നും അവരിലൂടെ സമൂഹത്തിൽ സർഗാത്മ കമായ മാറ്റം ദൃശൃമാകുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ചു ദശകങ്ങളായി വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ചിരുന്ന ബീഹാറിലെ പൂർണിയ എന്ന പ്രദേശം ഇന്ന് സ്ത്രീകളുടെ അധ്വാനത്തിന്റെ ഫലമായി പട്ടുനൂൽ പുഴുക്കളെ വളർത്തി ആയിരം രൂപയോളം വിലമതിക്കുന്ന പട്ടുസാരികളുടെ വിപണി വരെയെത്തിയ കാര്യം ഇതിനുപിന്നിൽ പ്രവർത്തിച്ച പ്രധാനമന്ത്രി സൂചിപ്പിച്ചു

സ്ത്രീകളുടെ അധാനശീലത്തെയും ധൈരൃത്തെയും പ്രകീർത്തി ച്ചായിരുന്നു ശ്രീ

ഭാഗീരഥിയമ്മയെപ്പോലുള്ളവർ നാടിന്റെ ശക്തിയും പ്രേരണയുമാണെന്നും അവരെ പ്രണമിക്കുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു

ൃ ഹുന്ർഹാത്തിലൂടെ രാജ്യത്തിന്റെ വിശാലതയും സംസ്കാർപ്പ്പ് പാരമ്പര്യവും ആഹാരരീതികളും വൈകാരിക വൈവിധൃഷ്ങളും ദർശിക്കാനായെന്ന് ശ്രീ

ഇതിൽ പങ്കെടുക്കുന്നവരിൽ പകുതിയോളം പേർ സ്ത്രീകളാണെന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന തത്വം അനുഭവിച്ചറിയാനുള്ള അവസരം കൂടിയാണ് ഹുനർഹാത്ത് എന്നും പ്രധാനമന്ത്രി നരന്ദ്രമോദി കൂട്ടിച്ചേർത്തു

കാർബൺ ബഹിർഗമനം കുറക്കുക മാത്രമല്ല അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാനും ജൈവ ഇന്ധനം വഴിയൊരുക്കുമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു

ഇതിനു പിന്നിൽ പ്രവർത്തിച്ച സി എസ് ഐ ആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു

ഭാരതത്തിന്റ ഭൂപ്രകൃതി അനുസരിച്ച് സാഹസിക കായിക ഇനങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ ലഭൃമാണ്

അതിനാൽ എല്ലാവരും താൽപരൃമുള്ള കാരൃം കണ്ടെത്തി ജീവിതത്തെ സാഹസപൂർണമാക്കണമെന്നും ശ്രീ മോദി ആഹ്വാനം ചെയ്തു

ഐ എസ് ആർ ഒ യുടെ വെബ്സൈറ്റിലെ ലിങ്കിലൂടെ ഓൺ ലൈൻ ബുക്കിംഗ് നടത്തി ശ്രീഹരികോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണം ഇനിമുതൽ അടുത്തിരുന്നു കാണാനാകും

യുവാക്കളെ ശാസ്ത്രവുമായി ബന്ധിപ്പിക്കുന്ന ഐ എസ് ആർ

യൂവികാ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഇതിൽ പങ്കെടുക്കണ മെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ദിദിന്സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തുന്ന പ്രസിഡന്റ് ട്രംപ് അഹമ്മദാബാദിൽ നമസ്തെ ട്രംപ് പരിപാടിയിൽ പങ്കെടുക്കും ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മൈതാനമായ മൊട്ടേരയിൽ ആണ് പരിപാടി ഒരു ലക്ഷത്തിലധികം പേരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും അഭിസംബോധന ചെയ്യും തുടർന്ന് നാളെ വൈകിട്ട് ആഗ്രയിലെത്തുന്ന പ്രസിഡന്റ് ട്രംപും കുടുംബവും താജ്മഹൽ സന്ദർശിക്കും ഒരു മണിക്കൂറോളം പ്രസിഡന്റും കുടുംബാംഗങ്ങളും ഇവിടെ ചിലവഴിക്കും

ട്രംപിന്റെ ഇന്ത്യാ സന്ദർശനം ഇന്ത്യയ്ക്ക് അഭിമാനിക്കാൻ വ്കനൽകുന്നതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു അഹമ്മഭൂബ്ബാദിൽ ചരിത്ര പരിപാടിയിൽ ട്രംപ് പങ്കാളിയാകുമെന്നും അ്ദ്ദേഹം ട്വീറ്റ് ചെയ്തു

ന്യൂഡൽഹിയിൽ ദ്വിദിന അന്താരാഷ്ട്ര നിയമ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം ജൈവവൈവിധൃത്തെയും സുസ്ഥിര വികസനത്തേയും സംബന്ധിച്ച് ഉയർന്നുവന്ന ആശങ്കകളേയും ഒരേ വികാര ത്തോടെ തന്നെയാണ് കോടതി സമീപിച്ചതെന്നും രാഷ്ട്രപതി പറഞ്ഞു

എല്ലാത്ത രത്തിലുമുള്ള സാമൂഹൃ വിവേചനങ്ങൾ അവസാനിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു വിദ്യാർത്ഥികളുടെ മുന്നോട്ടുള്ള ജീവിതം പര്യാപ്തപ്പെടുത്തുന്നതിൽ അസ്പാപകർക്ക് നിർണ്ണായക മായ പങ്കാണുള്ളതെന്നും അദ്ദേഹം പ്പറ്ഞ്ഞു

ഈ ആഴ്ച അവസാനം മാത്രം രാജ്യത്ത് കൊറോണ ബാധിച്ചവരുടെ എണ്ണം പതിന്മടങ്ങ് വർദ്ധിച്ചു

അതീവ ജാഗ്രത പുലർത്താൻ ഉന്നതതല യോഗത്തിൽ പ്രസിഡന്റ് മൂൺ ജെ ഇൻ ആവശ്യപ്പെട്ടു ചൈന കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും അധികം കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്ത രാഷ്ട്രമാണ് ദക്ഷിണ കൊറിയ അതിനിടെ ആഡംബര കപ്പലായ ഡയമണ്ട് പ്രിൻസസിൽ നേരത്തെ കൊറോണ ബാധ് സ്ഥിരീകരിച്ച സ്ത്രീയ്ക്ക് തുടർ പരിശോധന യിൽ വൈറസ് ബാധ ഇല്ലെന്ന് സ്ഥിരീകരിച്ചതായി ജപ്പാൻ അധികൃതർ വൃക്തമാക്കി

ഇന്നലെ വൈറസ് ബാധയെ തുടർന്ന് രണ്ട് പേർ മരിച്ചതോടെ യൂറോപ്പിലെ വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ രാഷ്ട്രമായി ഇറ്റലി മാറി

മരിച്ചവർ തുർക്കി പൌരന്മാരാണ്

ഇറാനിലെ ഗ്രാമ മേഖലയായ ഹബാഷ് ഇ ഒലിയയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് അമേരിക്കൻ ജിയോളജിക്കൽ സർവ്വേ അറിയിച്ചു

ഫൈനലിൽ കസാഖിസ്ഥാന്റെ ദനിയർ കൈസ്നോവുമായി ജിതേന്ദർ ഏറ്റുമുട്ടും